ഒപ്പുവയ്ക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

മേഖലയ്ക്കും പിന്തുണ ഉറപ്പാക്കാനുട്ണ് ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാറിൽ നിന്ന് പിന്മാറിയതെന്ന് ക്ട്രൂന്ദ്രമ്പ്രി അമിത് ഷാ

കമ്മീഷന് ഇന്ന് മോസ്കോയിൽ തുടക്കമാകും

ആന്ധ്ര്യെ നേരിടും

തായ്ലന്റിലെ ബാങ്കോക്കിൽ നടക്കുന്ന ആർ

പി ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് ഇന്ത്യ ഉന്നയിച്ച സുപ്രധാന വിഷയങ്ങളും ആശങ്കകളും പരിഗണിക്കുന്നതിൽ പരാജയപ്പെട്ടതിനാലാണ് ഈ മാറ്റമെന്ന് അദ്ദേഹം പറഞ്ഞു

വിപുലമായ പ്രാദേശിക ഐക്യത്തിനും സ്വതന്ത്ര വ്യാപാരത്തിനും ചട്ടങ്ങളിൽ അധിഷ്ഠിതമായ അന്താരാഷ്ട്ര വൃവസ്ഥിതിക്കും വേണ്ടിയാണ് ഇന്ത്യ നിലകൊള്ളുന്നതെന്ന് പ്രധാനമന്ത്രി ഉച്ചകോടിയിൽ പറഞ്ഞു

ഇ പി ചർച്ചകളിൽ തുടക്കം മുതലേ സജീവമായും ക്രിയാത്മകമായും ഒട്ടേറെ ചർച്ചകളിൽ ഇന്ത്യ പങ്കെടുത്തു

ദേശീയ താൽപ്പര്യം മുൻനിർത്തിയാണ് ഇന്ത്യ ഈ നിലപാടിലെത്തിയതെന്ന് വിദേശ മന്ത്രാലയ സെക്രട്ടറി വിജീയ് ്താക്കൂർ സിങ് പിന്നീട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു

ഓസ്ട്രേലിയ ജപ്പാൻ വിയറ്റ്നാം ഇന്തൊനേഷ്യ തായ്ലന്റ് തുടങ്ങിയ രാഷ്ട്രങ്ങളിലെ നേതാക്കളുമായും പ്രധാനമന്ത്രി ചർച്ച നടത്തി ന്യൂസ് ഡെസ്ക് ആകാശവാണി

രാജ്യത്തെ കർഷകർ ചെറുകിട സംരംഭങ്ങൾ ക്ഷീര മേഖല നിർമ്മാണരംഗം ഔഷധ ഉരുക്ക് രാസപദാർത്ഥ വ്യവസായങ്ങൾ തുടങ്ങിയവയ്ക്ക് പിന്തുണ ഉറപ്പാക്കാനാണ് ഈ തീരുമാനമെന്നും അദ്ദേഹം ടിറ്ററിൽ കുറിച്ചു

രാജ്യത്തെ സാമ്പത്തിക മാന്ദ്യം തൊഴിലില്ലായ്മ കാർഷിക പ്രതിസന്ധി ആർ

കോൺഗ്രസ്സ് നേതാക്കളായ ഗുലാം നബി ആസാദ് അഹമ്മദ് പട്ടേൽ ആർ

ഡി നേതാവ് മനോജ് ത്സാ ലോക് താന്ത്രിക് ജനതാദൾ നേതാവ് ശരദ് യാദവ് ഡി

രാജ്യത്ത് തൊഴിലില്ലായ്മ കുത്തനെ ഉയർന്നുവെന്നും ജി ഡി പി ഇടിവ് ആശങ്ക ഉയർത്തുന്നതാണെന്നും യോഗത്തിന് ശേഷം ശ്രീ

ഡൽഹിയിൽ കേന്ദ്രമന്ത്രി അമിത് ഷായുമായി കൂടിക്കൂഴ്ച നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയ്കായിരുന്നു അദ്ദേഹം പുതിയ ഗവൺമെന്റ് രൂപീകരിക്കാൻ ശിവസേന തടസ്സമാക്കില്ലെന്ന് എം പി സഞ്ജയ് റാവുത്ത് മുംബൈയിൽ പറഞ്ഞു ഗവർണ്ൺ ഭഗത് സിംഗ് ഖോഷിയാരിയെ സന്ദർശിച്ച ശേഷമായിരുന്നു ശിവസേന്റ്എം്

ഗവൺമെന്റ് രൂപീകരിക്കാൻ ഏറ്റവും വലീ്യ ഒറ്റക്കക്ഷിയാണ് മുന്നോട്ട് വരേണ്ടതെന്നും പുതിയ ഗവൺമെന്റ് എത്രയും വേഗം നിലവിൽ വരുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു

പ്രകൃതി ദുരന്തങ്ങൾ നേരിടുന്ന രാജ്യങ്ങൾക്ക് സഹായം നൽകാൻ ഇന്ത്യ ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു ന്യൂഡൽഹിയിൽ ഭൂകമ്പവും രക്ഷാപ്രവർത്തനവും സംബന്ധിച്ച ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ

രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സഹ അധ്യക്ഷനായി പങ്കെടുക്കും റഷ്യൻ പ്രതിരോധമന്ത്രി സെർജി ഷൊയ്ഗുമായി ശ്രീ രാജ്നാഥ് സിംഗ് ചർച്ച നടത്തും റഷ്യൻ വാണിജ്യ വ്യവസായ മന്ത്രി ഡെനിസ് മത്തുറോവുമായി ചേർന്ന് അദ്ദേഹം ഇന്ത്യ റഷ്യ പ്രതിരോധ വൃവസായ സഹകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും മെയ്ക്ക് ഇൻ ഇന്ത്യയ്ക്ക് കീഴിൽ പ്രതിരോധ വ്യവസായ രംഗത്ത് നിക്ഷേപം വർദ്ധിപ്പിക്കൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാങ്കേതിക വിദ്യ കൈമാറ്റം തുടങ്ങിയ വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ചയാകും

മലിനീകരണത്തിന്റെ ഉത്തരവാദിത്ത് സംസ്ഥാനങ്ങൾക്ക് മേൽ ചുമത്തുമെന്നും സുപ്രീംകോടതി മുന്നറീയിപ്പ് നൽകി

ന്യൂഡൽഹിയിൽ കൃഷി ശാസ്ത്രജ്ഞരുടെ റിക്രൂട്ട്മെന്റ് ബോർഡ് ഓഫീസിന്റെ ശിലാസ്ഥാപനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

കിഷ്ത്വാർ ജില്ലയിൽ ജമ്മു ഡിവിഷനിലാണ് സംഭവം രഹസ്യവിവരത്തെ തുടർന്ന് സേന നടത്തിയ തെരച്ചിലിനിടെയാണ് ആസിഫ് മുസ്തഫ എന്നയാളുടെ വീട്ടിൽ ഭീകരരുടെ ഒളിത്താവളം കണ്ടെത്തിയതെന്ന് പ്രതിരോധ വക്താവ് പറഞ്ഞു

ജമ്മുകാശ്മീർ പ്രോഗ്രസീവ് പീപ്പിൾസ് ഫ്രണ്ടിന്റെ പ്രതിനിധികൾ ഗ്രാമമുഖ്യൻമാർ പഹാഡിയൂത്ത് അസോസിയേഷൻ പ്രതിനിധികൾ അനന്ത്നാഗ് ബാരാമുള്ള കുൽഗാം ജില്ലകളിലെ ബ്ലോക്ക് ഡെവലപ്മെന്റ് കൌൺസിൽ അംഗങ്ങൾ എന്നിവരാണ് ചർച്ചയ്ക്കായി എത്തിയത് ജമ്മുകാശ്മീരിൽ ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി ഗവൺമെന്റ് ശക്തമായ നിലപാടുകളാണ് സ്വീകരിച്ചുവരുന്നതെന്ന് മന്ത്രി പറഞ്ഞു

സിന്ധുവും സൈനില്ലുനഹ്വാളും ചൈന ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിന് ഇന്നിറങ്ങും

സിന്ധു ജ്ടർമ്മനിയുടെ വൊനോലിയുമായാണ് മൽസരിക്കുക ഭിഷ്പന്യുടെ കായ്യാൻ യാനുമായാണ് സൈന നെഹ്വാൾ മിഴ്സൂരയ്ക്കുന്നത് പുരുഷ വിഭാഗം ഡബിൾസിൽ സത്വിക് സായ്രാജ് രങ്കി റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യമാണ് ഇന്ത്യയുടെ പ്രതീക്ഷ

കോഴിക്കോട് കോർപ്പറേഷൻ ഇ

കഴിഞ്ഞ സീസണിൽ നെയ്വേലിയിൽ നടന്ന യോഗ്യതാ റൌണ്ടിൽ ഒരു കളിയും ജയിക്കാനാവാതെ കേരള ടീം പുറത്തായി ഈ നാണക്കേട് മായ്ച്ചുകളയാനാണ് കേരളത്തിന്റെ യുവനിര ഇന്നിറങ്ങുന്നത് കഴിഞ്ഞ ടീമിലുണ്ടായിരുന്ന രണ്ടുപേർ മാത്രമാണ് ഇത്തവണത്തെ ടീമിൽ ഇടം നേടിയത്

ബിനോ ജോർജ്ജാണ് ടീമിന്റെ പരിശീലകൻ ഗോൾകീപ്പർ വി

മീറ്റിന്റെ മൂന്നാം ദിനമായ ഇന്നലെ ആറ് സ്വർണ്ണം ഉൾപ്പെടെ കേരളം പതിമൂന്ന് മെഡലുകൾ സ്വന്തമാക്കി

എസ് ആർ ഒ ചെയർമാൻ ഡോ

ഈ വിവരങ്ങൾ ശാസ്ത്രജ്ഞർ വിശദമായി വിശകലനം ചെയ്ത് വരികയാണെന്നും ഡോ ക്ട്മിവ്ൻ തൂത്തുക്കുടിയിൽ അറിയിച്ചു